ശ്രീലങ്കയിൽ പാർലമെന്ററി തിരഞ്ഞെടുപ്പ് ഉടൻ നടത്തണമെന്ന് പ്രധാനമന്ത്രി മഹീന്ദ രജപക്സെ

ഏഷ്യൻ ചാമ്പ്യൻസ് ഹോക്കിയിൽ ഇന്ത്യയും പാകിസ്ഥാനും സംയുക്ത ജേതാക്കൾ

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസൊ ആബെയുമായി ഇന്ന് ഔദ്യോഗിക ചർച്ച നടത്തും ആരോഗ്യം ഡിജിറ്റൽ സാങ്കേതികവിദ്യ കൃഷി ഭക്ഷ്യസംസ്കരണം ദുരന്തനിവാരണം തുടങ്ങിയ മേഖലകളിൽ ചർച്ച നടക്കും

വിശദാംശങ്ങളുമായി സുരേഷ്

ആഭ്യന്തര സുരക്ഷ കാര്യങ്ങളും മേഖലയിലെ പൊതുസ്ഥിതിയും അന്താരാഷ്ട്ര വിഷയങ്ങളും ഉച്ചകോടിയിൽ ചർച്ചയാവും

കഴിഞ്ഞദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ എത്തിയെങ്കിലും നയതന്ത്ര ചർച്ചകൾക്ക് ഇന്നാണ് തുടക്കമാവുക ഇന്ത്യൻ സമയം പകൽ രണ്ടരയ്ക്ക് ഔദ്യോഗികമായ വരവേൽപ്പ് പ്രധാനമന്ത്രിക്ക് നൽകും ഇന്നലെ ജപ്പാൻ പ്രധാനമന്ത്രിയും ശ്രീ മോദിയും ടോക്യോവിലെ റോബോട്ട് നിർമാണ കേന്ദ്രം സന്ദർശിച്ചു

കഴിഞ്ഞ തവണ നടത്തിയ കൂടിക്കാഴ്ചയുടെ അനന്തര നടപടികളും പുരോഗതിയും വിശകലനം ചെയ്തു ഇന്ന് നടക്കുന്ന ഉച്ചകോടിക്കു ശേഷം ജപ്പാനിലെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ശ്രീമതി സുഷമസ്വരാജ് ഇന്ന് ദോഹയിൽ ഖത്തർ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായ മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ ബിൻ ജാസിം അൽ താനിയുമായി കൂടിക്കാഴ്ച നടത്തും ഖത്തർ ഷേയ്ക്കുമായും സുഷമ സ്വരാജ് ചർച്ച നടത്തും കൂടാതെ ദോഹയിലെ ഇന്ത്യൻ സമൂഹവുമായും ശ്രീമതി സുഷമസ്വരാജ് ആശയ വിനിമയം നടത്തും ഇരുപ്പിക് രാജ്യങ്ങളും തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പ്രർസ്പ്പരബന്ധത്തെ നേതാക്കൾ വിലയിരുത്തും

സ്ന്ദർശനത്തിന്റെ രണ്ടാംപാദത്തിൽ കുവൈറ്റിൽ എത്തുന്ന ഢ്രീമതി സുഷമ കുവൈറ്റ് വിദേശകാരൃ മന്ത്രിയുമായും കുവൈറ്റ് ഷെയ്ക്കുമായും ചർച്ച നടത്തും

ഗൾഫ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനാണ് മന്ത്രിയുടെ സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഉൾപ്പെട്ട ദ അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക

എന്നാൽ സുപ്രീംകോടതി ഈ വാദം നിരസിക്കുകയായിരുന്നു

പനി ബാധിച്ച് ആശുപത്രിയിലെത്തിയ സ്ത്രീക്ക് ഞായറാഴ്ച നടത്തിയ പരിശോധനയിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് സിക്ക വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് പ്രതിരോധനടപടികൾ ഊർജിതമാക്കിയതായി ഗുജറാത്ത് ആരോഗൃ കമ്മിഷണർ ജയന്തി രവി പറഞ്ഞു

രാജേന്ദ്രപ്രസാദ് ഗവ

നാളെ ഷിംലയിലെ ഹിമാചൽപ്രദേശ് യൂനിവഴ്സിറ്റിയിൽ ബിരുദദാന ചടങ്ങിലുമ്പ അദ്ദേഹം സംബന്ധിക്കും

നിർമാണപ്രവർത്തനങ്ങൾ വാഹനപുകഎന്നിവ കൂടാതെ പഞ്ചാബ്ഹരിയാന എന്നീ അയൽ സംസ്ഥാനങ്ങളിൽ വൈക്കോൽ പോലുള്ള കാർഷിക വിഷപ്പുകയുടെ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതും ഡൽഹിയെ പിടിയിലാക്കുന്നു

ഇന്നലെ മുംബൈയില്ലെ യു

അഴിമതി ഇല്ലാതാക്കുക്ട് പുതിയൊരു ഇന്ത്യ പടുത്തുയർത്തുക എന്ന സന്ദേശം ഉയർത്തിയാണ് നവംബർ മൂന്നുവരെ അഴിമതി വിരുദ്ധ വാരാചരണം നടത്തുന്നത്

ചിലർ മനഃപൂർവ്വം തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടികജാതി ക്ഷേമ സമിതി സംസ്ഥാന സമ്മേളനതോടനുബന്ധിച്ചു പാലക്കാട് കോട്ടമൈതാനത്ത് നടന്ന പൊതുസമ്മേളനം ഉത്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്ത്രീകളോട് ശബരിമലയിൽ പോകാൻ എൽ ഡി

സുപ്രിം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ നടപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ചുമതലയാണ് വിധി വിശ്വാസികൾക്കും മാധ്യമപ്രവർത്തകർക്കും എതിരെ ആക്രമണം നടത്തിയവർക്കെതിരെയാണ് നടപടി വിശ്വാസം അനുസരിച്ചു ജീവിക്കുന്നതിന്നു എല്ലാ സഹായവും ചെയ്യും എന്നതാണ് ഗവൺമെന്റ് നയ്ക്ക് ഇന്നി ശബരിമലയിൽ ഒരു അക്രമവും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിശ്വാസത്തിന്റെ പേരിൽ സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടാക്കരുതെന്നും രാഹുൽ ഈശ്വറിന്റേതായി വരുന്ന വാർത്തകളും പ്രസ്താവനകളും തന്ത്രികുടുംബത്തിന്റേതാണെന്ന തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ടെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു ദേവസ്വം ബോർഡുമായി നല്ല ബന്ധത്തിലാണ് തന്ത്രികുടുംബം ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളതെന്നും അത് തുടരുമെന്നും തന്ത്രി കുടുംബം വ്യക്തമാക്കി

മേഴ്സിക്കുട്ടിയമ്മ കൊല്ലത്ത് പറഞ്ഞു

ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് പരിപാടി

ജയദേവൻ എം പി കൃഷിമന്ത്രി വി

സുനിൽകുമാർ റിച്ചാർഡ് ഹെ എം

ജനങ്ങളുടെ അഭിപ്രായം അ ിയാനും രാജ്യത്തെ രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റാനും ഇത് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു പാർലമെന്ററി തിരഞ്ഞെടുപ്പും പ്രവിശ്യാ തിരഞ്ഞെടുപ്പും കഴിയുന്നതുംവേഗം നടത്തണം

പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തശേഷം ഇതാദൃമായാണ് രജപക്സെ പ്രസ്താവന ഇറക്കുന്നത്

ഒമാനിലെ ്മൂസ്കത്തിൽ ഇന്നലെ രാത്രിയായിരുന്നു ടൂർണമെന്റിൽ ആദ്യമൽസരം മുതൽ തോൽവി മൽസരം

ഏഴ് മീറ്റ് റെക്കോർഡുകളാണ് ഇത്തവണത്തെ കായിക മേളയിലെ സംഭാവന

ഒഡീഷയുടെ തീരമേഖലകളിൽ നാളെ ഒറ്റപ്പെട്ട ശക്തമായ മഴക്ക് സാധ്യതയുണ്ട് കനത്ത ഇടിയോടുകൂടിയ മഴയുണ്ടാവും കടലിൽ മീൻപിടിക്കാൻ പോയവരോട് മടങ്ങാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നെൽകൃഷിക്ക് മഴ ഭീഷണിയാകില്ലെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്